മിസോറാം ഗവർണറായി പി

ശ്രീധരൻപിള്ള ഇന്ന് സ്ഥാന മേൽക്കും കോഴിക്കോട്ട് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും വാളയാർ പെൺകൂട്ടികളുടെ ദുരൂഹ മരണം സിബിഐ അന്വേ ഷിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് യുഡിഎഫിന്റെ പകൽ ഹർത്താൽ തുടങ്ങി ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഇന്നലെ കേരളത്തിന് ആറ് സ്വർണം ള്ള ൽ മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഇന്ത്യ പങ്കു ചേരില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി

കരാർ ചർച്ചകളിൽ രാജ്യം ഉന്നയിച്ച ആശങ്കകൾക്ക് തൃപ്തികരമായ പരിഹാരം ഉയർന്നുവരാത്ത സാഹചരൃത്തിലാണ് കരാറിൽ നിന്ന് ഇന്ത്യയുടെ പിൻമാറ്റം ഇപ്പോഴത്തെ രൂപത്തിൽ കരാർ അതിന്റെ അടിസ്ഥാന തത്വങ്ങളും ഇന്ത്യയുടെ താൽപരൃങ്ങളും നിറ വേറ്റില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി മേഖലയിലെ സ്വതന്ത്ര വ്യാപാ രത്തിനും സമഗ്രതയ്ക്കും അന്തർദേശീയ നയങ്ങളോട് ചേർന്ന് നിൽക്കുമെന്ന് ഉച്ചകോടിയിൽ അദ്ദേഹം അറിയിച്ചു

കരാറിൽ ഒപ്പുവെക്കേണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം ഏത് സാഹചരൃത്തിലും ദേശീയ താൽപരൃങ്ങൾ സംര ക്ഷിക്കുന്ന ഉറച്ച നേതൃശക്തിക്ക് തെളിവാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലെ കർഷകരോടും നിർമ്മാണ വാണിജ്യ വൃവസായ മേഖലകളോടും കേന്ദ്രം പുലർത്തുന്ന പ്രതി ബദ്ധതയാണ് ഈ തീരുമാനത്തിലൂടെ പ്രകടമാകുന്നതെന്ന് അമിത്ഷാ ടിറ്ററിൽ കുറിച്ചു

ചൈനയുടെ പിന്തുണയോടെ കൊണ്ടുവരുന്ന കരാറിനെ അതുകൊ ണ്ടുതന്നെയാണ് രാജ്യം പിന്തുണക്കാത്തത് നിർണായക തീരുമാന മെടുത്ത പ്രധാനമന്ത്രിയെ അനുമോദിക്കുന്നതായും ഗോയൽ ട്വീറ്റ് ചെയ്തു കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയ നടപടി കോൺഗ്രസിന്റെ കൂടി വിജയമാണെന്ന് പാർട്ടി ദേശീയ വക്താവ് രൺദീപ് സൂർജെ വാല ഡൽഹിയിൽ അഭിപ്രായപ്പെട്ടു

മൂന്ന് ദിവസത്തെ തായ്ലന്റ് സന്ദർശനത്തിനിടെ ഓസ്ട്രേലിയ വിയറ്റ്നാം പ്രധാനമ ന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തി ഇന്ത്യ പസഫിക് മേഖലയിൽ തീവ്രവാദത്തിനെതിരായ സഹ കരണവും നാവിക മേഖലയിലെ ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ ഉഭയകക്ഷി ചർച്ചകൾ സഹായകമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

രാവിലെ പതിനൊന്നര ക്കാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ബിജെപി സംസ്ഥാന ജന റൽ സെക്രട്ടറി എം

രമേശ് മുൻ സെക്രട്ടറി ബി

ഇന്നലെ മിസോ തലസ്ഥാനത്തെത്തിയ ശ്രീധരൻപിള്ളയെ ഗാർഡ് ഓഫ് ഓണറോടെ സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഉപരാ ഷ്ട്രപതി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരുമായി ശ്രീധ രൻപിള്ള കൂടിക്കാഴ്ച്ച നടത്തിയിരുന്നു മിസോറാം ഗവർണറാകുന്ന മൂന്നാമത്തെ മലയാളിയാണ് പി

ശ്രീധരൻപിള്ള നേരത്തെ വക്കം പുരുഷോത്തമൻ കുമ്മനം രാജ ശേഖരൻ എന്നിവർ മിസോറാമിൽ ഗവർണർമാരായിരുന്നു കോഴിക്കോട് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും

ലഘുലേഖ സൂക്ഷിച്ചതിന്റെ പേരിൽ അറസ്റ്റ് പാടില്ലെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും വിധിച്ചിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾക്കുവേണ്ടി ഹാജ രായ അഭിഭാഷകൻ പറഞ്ഞു

ഇതേതുടർന്നാണ് ജാമ്യാപേക്ഷ ഇന്നത്തേക്ക് മാറ്റിയ ത്

കുട്ടനാട്ടിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് വിള ഇൻഷുറൻസ് തുക എത്രയും വേഗം നൽകാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി വി

ഈ വർഷത്തെ കൃഷി നാശം നേരിൽ വിലയിരുത്താനെത്തിയതായിരുന്നു മന്ത്രി

കൊച്ചി പാലാരിവട്ടം പാലത്തിന്റെ സ്ഥിതി അതീവ ഗുരുതരമാ ണെന്ന് കാണിച്ച് വിദഗ്ധ സംഘം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി

ഭാരവാഹനങ്ങൾ പാലത്തിൽ അനുവദിച്ചാൽ വിള്ളലുകൾ വലുതായേക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു അതിനിടെ പാലം നിർമ്മാണത്തിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ പങ്ക് അനേഷിക്കണമെന്നാവശൃ പ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചു പത്ത് ദിവസത്തിനകം ഇക്കാരൃത്തിൽ വിശദീകരണം നൽകാൻ കോടതി വിജിലൻസ് ഡയറക്ടർക്ക് നിർദേശം നൽകി വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹമരണം സിബിഐ അന്വേ ഷിക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് പാലക്കാട് ജില്ലയിൽ ആഹാനം ചെയ്ത പകൽ ഹർത്താൽ തുടങ്ങി അന്വേഷണം അട്ടിമറിച്ചവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും യുഡിഎഫ് ആവശ്യം ഉന്നയിച്ചിട്ടു ണ്ട്

കുന്നംകുളത്ത് കഴിഞ്ഞ മൂന്ന് ദിവസമായി നടക്കുന്ന ശാസ്ത്രമേള യിൽ നൂറുകണക്കിന് ബാലശാസ്ത്ര പ്രതിഭകൾ പങ്കെടുക്കുന്നുണ്ട് സമാപന സമ്മേളനം ആലത്തൂർ എംപി രമ്യഹരിദാസ് ഉദ്ഘാടനം ചെയ്യും

കൊടുങ്ങല്ലൂർ മസ്ജി ദിന്റെ പൌരാണിക പ്രൌഢി നിലനിർത്തിക്കൊണ്ടായിരിക്കും പുനരു ദ്ധാരണ പ്രവർത്തനങ്ങൾ ആന്ധ്രയിലെ ഗുണ്ടൂരിൽ ദേശീയ ജൂനിയർ അത്ലറ്റിക്സിലെ മൂന്നാം ദിവസമായ ഇന്നലെ കേരളം ആറ് സ്വർണവും നാല് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ആറ് റിലെ മത്സരങ്ങ ളിൽ മൂന്ന് സ്വർണവും രണ്ട് വെള്ളിയും കേരള താരങ്ങൾക്കാണ്

വിശ്വജിത്തും സ്വർണം സ്വന്തമാക്കി

സന്തോഷ്ട്രോഫി ഫുട്ബോൾ ദക്ഷിണ മേഖലാ യോഗ്യതാ മത്സ രങ്ങൾ വൈകീട്ട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും മന്ത്രി ടി

രാമകൃഷ്ണൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും പകൽ വെളി ച്ചത്തിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്

കേരളം ആന്ധ്ര തമിഴ്നാട് ടീമുകൾ എ ഗ്രൂപ്പിലും പുതുച്ചേരി കർണാടക തെലങ്കാന ടീമുകൾ ബി ഗ്രൂപ്പിലുമാണ് ഗ്രൂപ്പ് ജേതാക്കൾ ഫൈനലിൽ എത്തും മത്സര ത്തിന് ടിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടില്ല സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം ജേതാക്കളായി കോട്ടപ്പടിയിലെ കലാശപ്പോരാട്ടത്തിൽ തിരുവനന്ത പുരത്തെ ഒന്നിനെതിരെ രണ്ടുഗോളിനാണ് മലപ്പുറം തോൽപ്പിച്ചത് എറണാകുളത്തെ തോൽപ്പിച്ച് കോഴിക്കോട് മൂന്നാം സ്ഥാനം നേടി

നാളെ രാവിലെ ലൂസേഴ്സ് ഫൈനലും ഉച്ചകഴിഞ്ഞ് ഫൈനലും നടക്കും പാലായിൽ സംസ്ഥാന ജൂണിയർ അത്ലറ്റിക് മീറ്റിനിടെ ഹാമർ തലയിൽ വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ മൂന്ന് കായിക അധ്യാപകരെ അറസ്റ്റു ചെയ്തു റഫറി മുഹമ്മദ് കാസിം ത്രോ ജഡ്ജ് ടി

മാർട്ടിൻ ഒഫീഷ്യൽ കെ

ജോസഫ് എന്നിവരാണ് അറസ്റ്റിലായത്

പാലാ സെന്റ് തോമസ് ഹയർസെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അഫീൽ ജോൺസൺ മരിച്ച സംഭവത്തിൽ മനപൂർവമല്ലാത്ത നരഹത്യക്കാണ് ഇവർക്കെതിരെ കേസെടുത്തത് കൂടത്തായി കൊലപാതക പരമ്പരയിൽ മഞ്ചാടിയിൽ മാത്യു കേസിൽ ജോളിയെ വിശദമായി ചോദ്യം ചെയ്യാൻ താമരശേരി കോട തിയിൽ അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും സിലി കേസിൽ ജോളിക്കും മാത്യുവിനും പുറമെ പ്രജികുമാറിനേയും അന്വേ ഷണ സംഘം പ്രതി ്രചേർത്തു പ്രജികുമാറിനെ അറസ്റ്റ് ചെയ്യാൻ ഇന്നലെ കോടതിയിൽ പൊലീസ് അപേക്ഷയും നൽകിയിട്ടുണ്ട്

മാണി വിഭാഗം സ്പീക്കർക്ക് കത്ത് നൽകി ജോസഫ് വിളിച്ചു ചേർത്ത നിയമസഭാ കക്ഷി യോഗം നിയമപ്രകാരമല്ലെന്ന് എൻ ജയരാജ് എംഎൽഎ സ്പീക്കർക്ക് നൽകിയ കത്തിൽ പറയുന്നു കണ്ണൂർ വിമാനത്താവളം കൂടി ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റായി നിശ്ചയിക്കണമെന്ന സംസ്ഥാന ഹജ്ജ് കമ്മറ്റിയുടെ നിർദേശം കേന്ദ്ര പരിഗണനയ്ക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ

നിലവിൽ കോഴിക്കോട് കൊച്ചി വിമാ നത്താവളങ്ങൾ മാത്രമാണ് എംബാർക്കേഷൻ പോയിന്റുകളായി പ്രവർത്തിക്കുന്നത്

സ്വന്തം നെൽവിത്തുപയോഗിച്ച് കൃഷി ചെയ്യുന്നവർക്കും കാർഷി കാനുകൂലൃങ്ങൾ നൽകാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചു നേരത്തെ ഗവൺമെന്റ് ഏജൻസികൾ നൽകുന്ന വിത്ത് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവർക്ക് മാത്രമായിരുന്നു ആനുകൂലൃം ഭേദഗതി നിർദേശം എല്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാർക്കും കൈമാറിയിട്ടുണ്ട് ജനങ്ങളുടെ കായികാരോഗൃം വർദ്ധിപ്പിക്കുന്നതിന് കണ്ണൂർ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഫിറ്റ് കണ്ണൂർ പദ്ധതിക്ക് തുടക്കമായി കല ക്ടറേറ്റ് മൈതാനിയിൽ അൽപം മുമ്പ് കലക്ടർ ടി